കഴിഞ്ഞ ആറ് മാസത്തിനിടെ എൻ

ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ രാജ്യത്ത് വികസനവും ഐകൃവും സാമൂഹിക ശാക്തീകരണവും വർദ്ധിപ്പിപ്പിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇറാഖിൽ ഗവൺമെന്റ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ തുടർന്ന് പ്രധാനമന്ത്രി ആദേൽ അബ്ദുൾ മഹ്ദി രാജിവച്ചു

ഡി എ ഗവൺമെന്റ് നിരവധി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദാംശങ്ങളുമായി കൃഷ്ണ

എ ഗവൺമെന്റിനെ ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനായി മുന്നോട്ട് നയിക്കുന്നതെന്നും പ്രധാനമത്തി ട്വിറ്റ് ചെയ്തു രാജ്യത്തെ സാമ്പത്തിക മാന്ന്യം ചെറുക്കാൻ ഗവൺമെന്റ് നിരവധി തീരുമാനങ്ങൾ കൈക്കൊണ്ട്ടത്ായും അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ് മാന്ദ്യം സൃഷ്ടിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു രണ്ടാം എൻ

ഗവൺമെന്റ് ആറ് മാസത്തെ ഭരണം പൂർത്തീകരിച്ചതിനോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാന്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം എല്ലാ മേഖലയിലും പുരോഗതി കൈവരിക്കുകയാണെന്നും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇന്ത്യയെ നിക്ഷേപകർക്കിടയിൽ ആകർഷക രാഷ്ട്രമാക്കി മാറ്റിയതായും ശ്രീ ജവദേക്കർ വ്യക്തമാക്കി

ഗുരുതര കുറ്റകൃത്യങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയ അന്വേഷണം നടത്താൻ ഇതിലൂടെ സാധിക്കും ന്യൂഡൽഹിയിലെ ഡയറക്ടറേറ്റ് ഓഫ് ഫോറൻസിക് സയൻസ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിഹേവിയറൽ സയൻസസ് ഗുജറാത്ത് ഫോറൻസിക്ക് സയൻസ് യൂണിവേഴ്സിറ്റി എന്നീ സ്ഥാപനങ്ങൾ ഇതുസംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പു വയ്ച്ചു വിദഗ്ധരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താനും മേഖലയിലെ പരീക്ഷണങ്ങൾക്കും ഫോറൻസിക്ക് അന്വേഷണത്തിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും

ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അണുബാധമൂല്മുണ്ടാകുന്ന എയിഡ്സ് രോഗത്തെക്കുറിച്ച് പൊതുജന അവബോധം സൃഷ്ടിക്കാനാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്

വി ക്കെതിരായ പോരാട്ടത്തിൽ ഏർപ്പെടാനും രോഗബാധിതർക്ക് പിന്തുണ നൽകാനും എയിഡ്സ് ദിനാചരണം അവസരമൊരുക്കുന്നു

ഐ വി ബാധിതരാണ് എയിഡ്സ് തടയുന്നതിനായി കേന്ദ്രം ദേശീയ എയിഡ്സ് നിയന്ത്രണ പരിപാടി നടപ്പാക്കി വരികയാണ്

വിനോദ് എം എൽ എ

ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന റാലി സൌത്ത് റെയിൽവെ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കും

ന്യൂഡൽഹിയിൽട്ട് നടിന്ന് പത്താമത് അവയവദാനദിന സമ്മേളനത്തെ അഭിസംബ്കോദ്ധ്ന ചെയ്യുകയായിരുന്നു മന്തി

അവയവദാനത്തിനായി ഏവരും പ്രതിജ്ഞയെടുക്കണമെന്ന് ചടങ്ങിൽ സംബന്ധിച്ച ആരോഗ്യകുടുംബ ക്ഷേമ സഹ മന്ത്രി അശ്ചിനി കുമാർ ചൌബേ പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

മികച്ച വൻകിട കമ്പനികൾക്ക് നൽകുന്ന ട്ടൈം അവാർഡ്സ് ഫോർ കോർപ്പറേറ്റ് എക്സ്ലൻസ് ചടങ്ങിൽ മുഖ്യപ്പ്രഭാഷണം നടത്തുകയായിരുന്നു ശ്രീ അമിത്ഷാ

നയരൂപീകരണത്തിൽ സുതാര്യതയും വ്യക്തതയും വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള എൻ

എ ഗവൺമെന്റിന് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്ത് ശുദ്ധീകരണ പ്രക്രിയ ആയിരുന്നു നടന്നത് ഇനി വരുന്ന അഞ്ച് വർഷം ഇന്ത്യയെ ലോക സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിനുള്ള പരിഷ്കരണങ്ങളാണ് ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെ നടന്ന സെമിഫൈനലിൽ കൊറിയൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് സൌരഭ് ഫൈനലിൽ കടന്നത് വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ മുൻ ദേശീയ ചാമ്പ്യൻ ഋതുപർണദാസ് പുറത്തായി തായ്ലന്റ് താരമാണ് ഋതുപർണയെ പരാജയപ്പെടുത്തിയത്

കാഠ്മണ്ഡുവിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മാൽദ്ധീപ്പ്സിനെ നേരിട്ടുള്ള സെറ്റുകൾക്കു പരാജയപ്പെടുത്തിയാണ് ഇന്ന്യൂ ഫൈനലിലേക്ക് കടന്നത്

മറ്റെന്നാൾ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ നേപ്പാളിനെ നേരിടും പുരുഷവിഭാഗത്തിൽ ഇന്ന് നടക്കുന്ന സെമി ഫൈനൽ മത്സരങ്ങളിൽ ഇന്ത്യ ശ്രീലങ്കയെയും പാകിസ്ഥാൻ ബംഗ്ലാദേശിനെയും നേരിടും

ദിവസങ്ങളായി നടക്കുന്ന ഗവൺമെന്റ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് അദ്ദേഹം പാർലമെന്റിൽ രാജി സമർപ്പിച്ചത് ഒക്ടോബർ മുതലാണ് ഇറാഖിൽ ഗവൺമെന്റ് വിരുദ്ധ കലാപങ്ങൾ ആരംഭിച്ചത് അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക അഴിമതി അവസാനിപ്പിക്കുക ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രക്ഷോഭം

ആക്രമണത്തിൽ രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ലണ്ടൻ ബ്രിഡ്ജിൽ വച്ച് ഐ എസ് ലെ ഉസ്മാൻഖാൻ അഞ്ച് ട്രൂപേർക്കെതിരെ ആക്രമണം നടത്തുകയായിരുന്നു

ബിനോയ് വിശ്വം എം പി പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി

കുഞ്ഞിമുഹമ്മദ് എന്നിവർ രക്ഷാധികാരികളായും സുനീർ ഖാൻ ചെയർമാനായും പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ കെ

ഉച്ചയ്ക്ക്ശേഷം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും

ബിജുകുമാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഡയറക്ടർ ഡ്ട്രൂ ആർ പ്രകാശ് കുമാർ ദേശീയ അക്കാഡമിക് കമ്മിറ്റി ചെയ്ർമ്മാൻ ഡോ

രഘുനാഥ് കെ